പൊതുയോഗങ്ങളും റോഡ്ഷോകളും കുടുംബയോഗങ്ങളുമായി പ്രചാരണം കൊഴുക്കുന്നു

ത രണ്ടാം ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചു

സാമൂഹിക മാധ്യമങ്ങളിലും നിറയുന്നതും വോട്ടഭ്യർത്ഥനകളാണ്

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്ങ് ഇന്ന് വർക്കലയിൽ എൻഡിഎ സ്ഥാനാർത്ഥിക്കായി റോഡ് ഷോ നടത്തും തുടർന്ന് ശിവഗിരിയിൽ എത്തുന്ന അദ്ദേഹം മഹാസമാധിയിൽ പുഷ്പ്പാർച്ചന നടത്തി സ്വാമിമാരുമായി കൂടിക്കാഴ്ച്ച നടത്തും ഉച്ചകഴിഞ്ഞ് പുതുപ്പള്ളിയിലും ഇരിഞ്ഞാലക്കുടയിലും എൻഡിഎ പൊതു യോഗങ്ങളിൽ പങ്കെടുക്കുന്ന രാജ്നാഥ് സിങ്ങ് വൈകീട്ട് എറണാകുളത്ത് റോഡ് ഷോയിൽ പങ്കെടുത്ത് രാത്രി ഡൽഹിക്ക് മടങ്ങും ഇന്നലെ രാത്രി കോഴിക്കോട്ടെത്തിയ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ

ഇന്ന് അദ്ദേഹം ധർമ്മടത്ത് നാലാംപീടികയിലും തൃശൂർ നാട്ടികയിലും എൻഡിഎ സ്ഥാനാർത്ഥികളോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കും വൈകീട്ട് തൊടുപുഴയിൽ എൻഡിഎ പ്രചാരണ സമ്മേളനം ജെ

തുടർന്ന് നേമം മണ്ഡലത്തിലെ കൈമനത്തും വട്ടിയൂർക്കാവിലെ അമ്പലമുക്കിലും റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു പോകും രണ്ടാംഘട്ട പ്രചാരണത്തിനെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തി ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ പര്യടനം നടത്തും

സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും ഇന്ന് കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ എൽഡിഎഫ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും

കോഴിക്കോട് സൌത്ത് നോർത്ത് മണ്ഡലങ്ങളിലെ എൻഡിഎ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഗവൺമെന്റാണെന്നും അദ്ദേഹം പറഞ്ഞു രുര സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെയും ജീവിതം വഴിമുട്ടിയ സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സിപിഐഎമ്മിന്റെ കൈവശം ഒന്നുമില്ലെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു മലപ്പുറം ജില്ലയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം അർഹരായ ചെറുപ്പക്കാർക്ക് ജോലി നൽകാത്ത ഇടത് ഗവൺമെന്റ് സ്വന്തക്കാർക്ക് മാത്രം ജോലി നൽകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ജോലി ലഭിക്കാൻ ഇടുതുപക്ഷത്തിന്റെ ആളായാൽ മതി എന്നാണ് അവസ്ഥയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രുര സംസ്ഥാനത്ത് അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന രീതി തുടരണമെന്ന് മുസ്ലീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി

തിരുവമ്പാടി മണ്ഡലത്തിലെ യുഡിഎഫ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കേരളം തമിഴ്നാട് അസം പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലേയും പുതുച്ചേരിയിലേയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഏതാനും സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കും എക്സിറ്റ് പോൾ നിരോധനം ബാധകമാകുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി രുര ഈസ്റ്ററിനും വിഷുവിനും റമ്സാനിനും മുമ്പ് അരി വിതരണം ചെയ്യാൻ ഗവൺമെന്റ് നടത്തിയ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു ഇക്കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരാതി നൽകിയതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി രുര കിഫ്ബിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തി സംസ്ഥാന ഗവൺമെന്റിനെ പേടിപ്പിക്കാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കുറച്ച് സമയത്തേക്കെങ്കിലും ഗവൺമെന്റിനെ പുകമറയിൽ നിർത്താനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നെയ്യാറ്റിൻകരയിലെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു

കിഫ്ബി ആസ്ഥാനത്ത് ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധന നടപടി വിചിത്രമായിരുന്നെന്നും അവർ ആവശ്യപ്പെട്ട രേഖകൾ ഒരു മാസം മുമ്പ് നൽകിയിരുന്നുവെന്നും കിഫ്ബി വിശദീകരിച്ചു

രുഭ സ്വർണക്കടത്ത് ഡോളർ കടത്ത് തുടങ്ങിയ കേസുകളിൽ സംസ്ഥാന ഗവൺമെന്റിനെതിരായ കേന്ദ്ര നീക്കങ്ങൾക്ക് തടയിടാൻ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗം അനുമതി നൽകി ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി കെ

മോഹനനെ കമ്മീഷനാക്കിയാണ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി നേടിയ ശേഷമാകും തീരുമാനം നടപ്പിലാക്കുക രുഭ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന ഗവൺമെന്റ് നടപടി തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തുന്ന അസംബന്ധ നാടകം മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു രും കേന്ദ്ര ഏജൻസികൾക്കെതിരായി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ

കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോള താപനത്തിന്റെയും കെടുതികളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനാണ് ഭൌമ മണിക്കൂർ ആചരണം

പ്രാദേശിക സമയം രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ വൈദ്യുതി വിളക്കുകൾ അണച്ചും കമ്പ്യൂട്ടർ ടെലിവിഷൻ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെയും ഊർജോപയോഗം പരമാവധി കുറച്ചാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത് ദേഴ ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിന് ആറ് വിക്കറ്റ് ജയം

രും സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ പ്രതീക്ഷിച്ചതിലധികം വേനൽമഴ ലഭിച്ചുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

മലപ്പുറം കാസർകോട്കൊല്ലം തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ മഴക്കുറവ് രേഖപ്പെടുത്തി

അടുത്ത മാസം മൂന്നിനാണ് പ്രധാന ചടങ്ങായ മഹാരഥം വലി